പ്രധാനമന്ത്രിയാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലെന്നും സൈന്യത്തിൽ ചേരാനായിരുന്നു ആഗ്രഹമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കെ ശശീന്ദ്രൻ

കണ്ണൂരിലാണ് ഏറ്റവും ഉയർന്ന പോളിങ്

കുറവ് തിരുവനന്തപുരത്ത്

മണ്ഡലങ്ങളും ഒടുവിൽ ലഭ്യമായ പോളിങ് ശതമാനവും

ഉയർന്ന പോളിങ് ശതമാനം അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് എല്ലാവരും വെച്ചു പുലർത്തു ന്നത് എന്നതാണ് ഇതിന് കാരണം വരും നാളുകളിൽ ബൂത്തുകൾ തിരിച്ച് വോട്ടിങ് നില മനസിലാക്കി വിജയസാധ്യത വിലയിരുത്താ നാകും പാർട്ടികളുടെ ശ്രമം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ തരംഗമുണ്ടായി എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് പക്ഷെ ഇത് തിരിച്ചറിയാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല അടിയൊഴുക്കു കളും മുന്നണികൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്നര മാസത്തോളം ഇള ക്കിമറിച്ച പ്രചാരണത്തിന്റെ ബാക്കിപത്രമാണ് വോട്ടിങ്ങിൽ പ്രതി ഫലിക്കുന്നത്

സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാംതവണയാണ് കനത്ത പോളിങ് രേഖപ്പെടുത്തുന്നത്

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയുടെ മത്സരം കൊണ്ട് ശ്രദ്ധേയമായ വയനാടാണ് ശതമാന വർധനയിൽ രണ്ടാം സ്ഥാന ത്ത്

ശത മാനത്തിൽ ഏറ്റവും കുറവ് വടകരയിലാണ്

നാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ രണ്ട് ശതമാനത്തിൽ താഴെയാണ് വോട്ടുകളുടെ വർധന

ആലപ്പുഴ മാവേലിക്കര ലോക്സഭ മണ്ഡലങ്ങളിൽ മികച്ച പോ ളിങ്

ആറു ഭിന്നലിംഗക്കാരിൽ ആരും വോട്ടു ചെയ്തില്ല

ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ കനത്ത പോളിങ് കോൺഗ്രസിന് അനുകൂലമാകുമെന്ന് ശശിതരൂർ എം

കേരളത്തിൽ യു

എഫ് തരംഗം ഉണ്ടാകുമെന്നും തരൂർ തിരുവ നന്തപുരത്ത് പറഞ്ഞു സൈന്യത്തിൽ ചേരാനായിരുന്നു ആഗ്രഹമെന്നും പ്രധാനമന്ത്രി യാവുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലെന്നും പ്രധാനമന്ത്രി നരേ ന്ദ്രമോദി പറഞ്ഞു രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല പ്രധാനമന്ത്രി എപ്പോഴും സാധാരണക്കാരനാ യിരിക്കണമെന്നും ശ്രീരാമകൃഷ്ണ മിഷൻ തന്നെ സ്വാധീനിച്ച തായും പ്രധാനമന്ത്രി ഒരു സ്ഥകാര്യ ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞു

റഫാൽ കേസിലെ സുപ്രിംകോടതി വിധിക്കെ തിരെ സമർപ്പിച്ച പുനപരിശോധന ഹരജികൾക്കൊപ്പമായിരിക്കും കോടതിയലക്ഷ്യ ഹരജിയും പരിഗണിക്കുക

പി നേതാവും എം പിയുമായ മീനാക്ഷി ലേഖിയാണ് ഹർജി നൽകിയത് സംസ്ഥാനങ്ങളിലെ കീഴ്ക്കോടതികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനും അവയിലെ ഒഴിവുകൾ നികത്തുന്നതിനും അനുവദിച്ചു ഫണ്ട് വിതരണം ചെയ്യാൻ കേന്ദ്രത്തിന് സുപ്രിംകോടതിയുടെ നിർദ്ദേശം വിഷയത്തിൽ അമിക്കസ് ക്യൂറിയായിരുന്ന മുതിർന്ന അഭിഭാഷകൻ വിജയ് ഹൻസാരിയ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് ജസ്റ്റിസ് രഞജൻ ഗൊഗോയ് ജസ്റ്റിസുമാരായ ദീപക് ഗുപ്ത സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങിയ ബഞ്ച് നിർദ്ദേശം പുറപ്പെടുവിച്ചത്

സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തി ച്ചവർക്കായി രാജ്യവ്യാപകമായ തെരച്ചിൽ തുടരുകയാണ്

ഏഴ് ചാവേർ ബോംബ് സ്ഫോടങ്ങളാണ് മൂന്ന് ക്രൈസ്തവ ദേവാ ലയങ്ങളിലും മൂന്ന് ഹോട്ടലുകളിലുമായി ഉണ്ടായത് അടിയന്തരാ വസ്ഥ പ്രഖ്യാപിച്ച ശ്രീലങ്കയിൽ പലയിടങ്ങളിലും അനിശ്ചിതകാല കർഫ്യൂവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ശ്രീലങ്കയിൽ സ്ഫോടന പരമ്പരയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്ന റിയിപ്പ് ഇന്ത്യ നൽകിയിരുന്നുവെന്നും എന്നാൽ അത് കൈകാര്യം ചെയ്യുന്നതിൽ രാജ്യത്തിന് പിഴവ് പറ്റിയെന്നും പ്രധാനമന്ത്രി റനിൽ വിക്രമസിംഗെ

ആക്രമികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ അന്താരാഷ്ട്ര സഹായം തേടിയിട്ടുണ്ടെന്നും വിക്രമസിംഗെ ഒരു സ്ഥകാര്യ ചാന ലിനോട് പറഞ്ഞു

അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ചില സ്ഥകാര്യ ബസ്സു കൾ മോട്ടോർ വാഹന നിയമം ലംഘിച്ചാണെന്ന് പരാതി ഉയർന്നി ട്ടുണ്ടെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഇതിനെതിരെ ശക്ത മായ നടപടി സ്വീകരിക്കുമെന്നും ചെക്ക് പോസ്റ്റുകളിൽ പരിശോ ധന കർശനമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി

അന്തർ സംസ്ഥാന ബസ് സർവീസുകളെ നിരീക്ഷിക്കാൻ സംസ്ഥാ നത്ത് പ്രത്യേക സ്കാഡ് രൂപീകരിച്ചു എൻഫോഴ്സ്മെന്റ് ആർ ടി

ചരക്കു കയറ്റുന്ന ബസ്സുകൾക്കെതിരെ നടപടി എടു ക്കുമെന്ന് സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണർ വൃക്തമാക്കി

ഇന്ന് പുലർച്ചെ ബൈക്കിൽ പോവു കയായിരുന്ന ഇവരെ ടിപ്പർ ലോറി ഉപയോഗിച്ച് ഇടിച്ച് വീഴ്ത്തിയ തിന് ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു

സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണ വിഷയത്തിൽ കോടതി സിബിഐ ഡയറക്ടറെയും ഡൽഹി പൊലീസ് കമ്മീഷണറെയും ഇന്റലിജൻസ് ബ്യൂറോ ചീഫിനെയും വിളിച്ചു വരുത്തി

കേസിൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയെ ഉൾപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്നാരോ പിച്ച് അഭിഭാഷകൻ നൽകിയ സത്യവാങ്മൂലം പരിശോധിച്ച ശേഷ മാണ് സുപ്രിംകോടതിയുടെ തീരുമാനം

മുദ്രവെച്ച കവറിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ആദ്യ വിചാരണ മറ്റന്നാൾ നടത്തുമെന്ന് അന്വേഷണ സമിതി അംഗമായ ജസ്റ്റിസ് എസ്

ഇതുസംബ ന്ധിച്ച് കോടതി സെക്രട്ടറി ജനറലിനോട് എല്ലാ രേഖകളും തയ്യാ റാക്കി വയ്ക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു

ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം ചുഴലിക്കാ റ്റായി മാറാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര ത്തിന്റെ മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടൽ ഇന്ത്യൻ മഹാസമുദ്ര ത്തോട് ചേരുന്ന ഭാഗത്ത് നാളെ ന്യൂനമർദ്ദർ രൂപ്പപ്പെടുമെന്നാണ് റിപ്പോർട്ട് ന്യൂനമർദ്ദം നാല് ദിവസത്തിനകം ചുഴലിക്കാറ്റായി മാറാ നിടയുണ്ടെന്നാണ് സൂചന